ലക്ഷ്യത്തോടെയുള്ള പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ റോസ്ഗർ അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു

പരിഗണണനയെന്ന് പ്രധാനിമന്ത്രി ഏത് വെല്ലുവിളികളേയും നേരിടാൻ സുസജ്ജമെന്ന് വ്യോമസേനാ മേധാവി

കവിഞ്ഞു ബ്രസീലിൽ പത്ത് ലക്ഷത്തിലധികം രോഗബാധിതർ

ബിഹാറിലെ ഖഗാരിയ ജില്ലയിലെ തെലിഹാർപ്പ് ഗ്രാമത്തിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ക്ലിസ്ട്രെന്ത്രി പദ്ധതിക്ക് തുടക്കമിട്ടത് ലോക്ഡൌണിന് ശേഷം സൂദേശൂങ്ങളിലേക്ക് തിരികെ എത്തിയ കുടിയേറ്റ തൊഴിലാളികൾക്ക് തൊഴിൽ ഉറപ്പാക്കുന്നതിനോടൊപ്പം സുസ്ഥിരമായ അടിസ്മാക്ക് സൌകര്യ വികസനവും പദ്ധതി ലക്ഷ്യമിടുന്നു ലഡാക്കിൽ വീരമൃത്യു വരിച്ച ബിഹാർ റെജിമെന്റിലെ ജവാന്മാർക്ക് ആദരമർപ്പിച്ചാണ് പ്രധാനമന്ത്രി ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത് രാജ്യം മുഴുവൻ സൈനികർക്കൊപ്പമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ചൈനയുമായുള്ള അതിർത്തി മേഖലയിലെ പട്രോളിംഗ് വർദ്ധിച്ചതായും പ്രദേശത്തെ സംഭവ വികാസങ്ങളെക്കുറിച്ച് വേഗത്തിൽ അറിയാനും പ്രതികരിക്കാനും ഇത് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വ്യാപാരം തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയിൽ പുറത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളെ ഗവൺമെന്റ് എല്ലായ്പ്പോഴും അതിജീവിച്ചതായും പ്രധാനമന്ത്രി വൃക്തമാക്കി

ഏത് സാഹചര്യവും നേരിടാൻ രാജ്യം തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു

എസ് എഫ്

സംഭവത്തെക്കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കും

ഒരു ദ്വിവ്സുത്തിനിടയിൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന ന്യിരക്കാണിത്

വിവിധ പ്രവേശന പരീക്ഷകൾ നടക്കുന്നതിനാൽ സംസ്ഥാനത്ത് ഞായറാഴ്ചകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സമ്പൂർണ്ണ ലോക്ഡൌൺ നാളെ നടപ്പാക്കില്ല അതിനിടെ തിരുവനന്തപുരത്ത് ഓട്ടോഡ്രൈവർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുര്യേന്ദ്രൻ പറഞ്ഞു ഇയാളുടെ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്ത്ട്ടുനായിട്ടില്ല

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുച്ചിറപ്പള്ളി വാർത്താവിഭാഗം മേധാവി ഡോ

പരമേശ്വരൻ

ഗവൺമെന്റിന്റെ ചരക്ക് നീക്ക നയങ്ങൾ നടപ്പിലാക്കാൻ കപ്പൽ മേഖല സജ്ജമാണോ എന്നത് കേന്ദ്രമന്ത്രി മൻസൂഖ് മാണ്ഡവൃ വിലയിരുത്തി